പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിക്കി വാർഷിക സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

നരേന്ദ്രമോദി ഇന്ന് വെർച്ച്ലായി അഭിസംബോധന ചെയ്യും

മാർഗ്ഗരേഖയായി ക്കേരളത്തിൽ കോവിഡ് വാക്സിൻ വിതരണം പൂർണമായും സൌജന്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി

ഘട്ടത്തിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു നാല് ജില്ലകളിൽ വോട്ടെടുപ്പ് തിങ്കളാഴ്ച

പോരാട്ടം

യുഎൻ ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവർ ചിലിയുടെയും ഇറ്റലിയുടെയും സഹകരണത്തോടെ യാണ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് പാരീസ് കരാറിനെത്തുടർന്ന് നേതാക്കൾക്ക് പുതിയ പ്രതിബദ്ധതകൾ പ്രഖ്യാപിക്കാനുള്ള അവസരമാകും ഉച്ചകോടി യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവരും ഉച്ചകോടിയിൽ പ്രസംഗിക്കും

കാർഷിക മേഖലയിലെ എല്ലാ തടസ്സങ്ങളും സർക്കാർ ഇപ്പോൾ നീക്കം ചെയ്യുകയാണ് പരിഷ്കാരങ്ങൾക്ക് ശേഷം കർഷകർക്ക് പുതിയ വിപണികളും സാങ്കേതികവിദ്യയുടെ കൂടുതൽ ആനുകൂല്യങ്ങളും ലഭിക്കും കോൾഡ് സ്റ്റോറേജ് സൌകര്യം നവീകരിക്കും ഇത് കാർഷിക മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന് കാരണമാകും ഇതിലൂടെ കർഷകർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

വ്യവസായ പ്രമുഖരുടേയും സാമ്പത്തിക വിദഗ്ധരുടേയും കൂട്ടായ്മയായ ഫിക്കി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയ നിയമങ്ങളെ പൂർണമായും ഇല്ലാതാക്കുകയല്ല മറിച്ച് കർഷകർക്ക് വ്യാപാര വ്യവസായ വിനിമയ മേഖലകളിൽ പുതിയ മുന്നേറ്റം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

നിലവിലുള്ള പദ്ധതികൾ പ്രകാരം കർഷകരിൽ നിന്ന് ഖാരിഫ് വിളകൾ മിനിമം താങ്ങുവിലയ്ക്ക് വാങ്ങ്ുന്നത് തുടരുകയാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം ആറിയിച്ചു പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാക് ഉത്തരാഖണ്ഡ് തമിഴ്നാട് ചണ്ഡീഗഡ് ജമ്മു കശ്മീർ കേരളം ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഒഡീഷ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ബിഹാർ എന്നിവിടങ്ങളിൽ സംഭരണം സുഗമമായി തുടരുകയാണ്

കോവിഡ് മൂലമുള്ള നികുതി വരുമാനത്തിലെ കുറവ് കാരണം ബുദ്ധിമുട്ടുന്ന സംസ്ഥാന സർക്കാരുകളുടെ മൂലധന ചെലവ് വർദ്ധിപ്പിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്

ആശുപത്രികൾക്ക് പുറമേ ഹാളുകളും വാക്സിൻ കേന്ദ്രങ്ങളാക്കും ഇതുസംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മാർഗരേഖ നൽകി

വാക്സിൻ ലഭൃമായാൽ സൌജനൃമായാകും വിതരണമെന്നും അക്കാരൃത്തിൽ സംശയം വേണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വൃക്തമാക്കി

പൊതു ആരോഗ്യ സംവിധാനം കൂടുതൽ മെച്ചപ്പെടണ്ടതുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ഡോക്ടർമാരുടെ സമരത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ലെന്നും ശ്രീമതി കെ

ശൈലജ പറഞ്ഞു

കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലക്കളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്

ഫലം വൈകാതിരിക്കു്ന്ന് കൃത്യതയാർന്ന സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിഷണർ വീ

ഓരോ കേന്ദ്രങ്ങളില്ലെയ്യും വോട്ടെണ്ണൽ പുരോഗതി കമ്മീഷന്റെ ട്രെൻഡ് സോഫ്റ്റ് വെയ്റിൽ തത്സമയം അപ്ലോഡ് ചെയ്യും

ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ ബ്ളോക്ക് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേത് അതത് സ്ഥാപനങ്ങളിലെ കേന്ദ്രത്തിലുമായിരിക്കും നടക്കുക

മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വോട്ടർമാർക്ക് ബൂത്തിൽ ശരീരോഷ്മാവ് അളക്കുന്നതുൾപ്പെടെയുള്ള പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി ബൂത്തിൽ വോട്ടർമാർ മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുന്നു ണ്ടെന്നും അകലം പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കമ്മിഷൻ നിർദ്ദേശം നൽകി